ഒന്നാംഘട്ട വോട്ടെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി

പാകിസ്ഥാൻ പോരാട്ടം ഇന്ന്

തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താനുള്ള എല്ലാം ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു

സ്ത്രീകൾക്ക് പ്പോട്ട് ചെയ്യാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്

യുവ വോട്ടർമാരുടെ പങ്കാളിത്തം വോട്ടെടുപ്പിൽ പ്രോത്സാഹിപ്പിക്കാനായി വോട്ടർ സെൽഫി സോൺ ഏർപ്പെടുത്തിയതായി ചീഫ് ഇലക്ട്രൽ ഓഫീസർ സുബ്രദ് സാഹു പറഞ്ഞു അതിനിടെ ബിജാപൂരിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി ഇന്ന് നടന്ന ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു മറ്റൊരു ആക്രമസംഭവത്തിലും ഒരു മാവോയിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു രണ്ട് റൈഫിലുകളും സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പ്രദേശത്ത് പോലീസ് തെരച്ചിൽ തുടരുകയാണ്

ബസ്താർ മേഖലയിൽ മാവോയിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തെത്തുടർന്നാണ് ബി എസ് എഫ് സബ് ഇൻസ്പെക്ടർക്ക് സാരമായി പരിക്കേറ്റത് ഇന്ന് രാവിലെ കാങ്കർ ജില്ലയിൽ ഹോമേ ഗ്രാമത്തിലായിരുന്നു സംഭവം

വാരണാസിയിലെ ജനങ്ങൾക്കും നഗരം സന്ദർശിക്കുന്നവർക്കും ഈ റോഡുകൾ വലിയ അനുഗ്രഹമായതാണ് വിലയിരുത്തിപ്പെടുന്നത് ഇതോടൊപ്പം വാരണസിയിൽ ഗംഗാനദിയിലെ ഉൾനാടൻ ജലഗതാഗതമാർഗ്ഗവും പ്രധാനമന്ത്രി നാളെ രാജ്യത്തിന് സമർപ്പിക്കും

സൺടെക് സിംഗപ്പൂർ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രധാന ചടങ്ങിൽ പത്ത് ആസിയാൻ അംഗരാഷ്ട്രങ്ങൾ സാമ്പത്തിക സുരക്ഷാ സാംസ്കാരിക സഹകരണം സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീസിയൻ ലൂംഗ് ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കും ആസിയാൻ തലവൻമാർ ആസിയാൻ സ്മാർട്ട് സിറ്റി ചട്ടക്കൂട് സ്വീകരിക്കുമെന്നും പ്രാദേശിക സമഗ്ര സാമ്പത്തിക പങ്കാളിത്തം സംബന്ധിച്ച കരാറിലെത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു

കൊല്ലപ്പെട്ടയാളെ തിരിച്ചറീഞ്ഞിട്ടില്ല

തീവ്രവാദികൾ സുരക്ഷാസേനയുടെ ചെക്ക്പോസ്റ്റ് ആക്രമിച്ചതിനെത്തുടർന്ന് സേന നടത്തിയ വെടിവയ്പ്പിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് സംഭവസ്ഥലത്തു നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെന്നും ഒരു തീവ്രവാദി കൂടി പ്രദേശത്ത് ഒളിവിലുള്ളതായി സംശയിക്കുന്നുണ്ടെന്നും സേന അറിയിച്ചു ഇതേതുടർന്ന് പ്രദേശത്ത് തെരച്ചിൽ നടപടികൾ ഊർജ്ജിതമാക്കി

നീണ്ടനേരത്തെ ചോദ്യം ചെയ്യലിനുശേഷമാണ് ഇന്നലെ ക്രൈംബ്രാഞ്ചിനു മുന്നിൽ ഹാജരായ റെഡ്ഡിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കുന്ന റെഡ്ഡിയെ കസ്റ്റഡിയിൽ വിട്ടുനൽകാൻ ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകും

യുദ്ധത്തിൽ വീരമൃത്യുവരിച്ചവരെ പ്രധാനമന്ത്രി സന്ദേശത്തിൽ അനുസ്മരിച്ചു

സമാധാനം പരിരക്ഷിക്കുന്നതിനുവേണ്ടിയായിരുന്നു ഇത് ഫ്രാൻസിലേയും ഇസ്രായേലിലേയും യുദ്ധ സ്മാരകങ്ങളിൽ ഇന്ത്യയുടെ സേവനങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ട് തീൻമൂർത്തി ഹാഫിയ ചൌക്കിലെ യുദ്ധ സ്മാരകത്തിൽ ഇസ്രേയേലി പ്രധാനമന്ത്രി ബഞ്ചമിൻ നെതന്യാഹൂവിന്റെ സന്ദർശന വേളയിൽ അദ്ദേഹത്തോടൊപ്പം സ്മരണാഞ്ജലി അർപ്പിച്ചതും പ്രധാനമന്ത്രി സന്ദേശത്തിൽ അനുസ്മരിച്ചു

ബ്രട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ്ക് ് എലിസബത്ത് രാജ്ഞി എന്നിവർ ലണ്ടനിൽ പ്രത്യേക പരിഷ്ടാടിയിൽ സംബന്ധിക്കും

യുദ്ധവിരാമ ദിവസം ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങ് നടന്നത്

ചെറുമീനുകളെ പിടിക്കുന്നത് തടയുന്നതിനായിയുള്ള സി

ഐ

പിടിക്കുന്ന ചെറുമീനുകളുടെ നിയമപരമായ ഏറ്റവും കുറഞ്ഞ വലിപ്പം സംബന്ധിച്ച സി എം എഫ് ആർ

സമ്മേളനത്തിൽ ഇതുസംബന്ധിച്ച തീരുമാനം ഉണ്ടായതായി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു

ആഴക്കടൽ മത്സ്യബസ്ഢനത്തീന് മത്സ്യത്തൊഴിലാളികളെ പ്രാപ്തരാക്കുന്നതിന് പ്പേണ്ടി സഹകരണ സംഘങ്ങൾ വഴി ആവശ്യമുള്ള സാങ്കേതീക സാമ്പത്തീക സഹായവും മികച്ച പരിശീലനവും കേന്ദ്ര സഹായത്തോടുകൂടി ഉറപ്പ് വരുത്തുവാനും സമ്മേളനത്തിൽ തീരുമാനമായി

ചിദംബരം സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു ടോസ് നേടിയ വെസ്റ്റിൻഡീസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് താക്കൂർ ആഭ്യകേന്ദ്രം നിർമ്മിച്ചതെന്ന് മുനിസിപ്പൽ കമ്മീഷണ്ണ്ട് സ്ഞ്ജയ് ദുബെ ആകാശവാണിയോട് പറഞ്ഞു ഒറ്റണീലുക്ട്ടിടം പണിയുന്നതിന് ലഭിച്ച ഉത്തരവ് ഉപയോഗിച്ച് താക്കൂർ ്മൂന്നു്നില കെട്ടിടം പണിയുകയായിരുന്നുവെന്ന് ശ്രീ സഞ്ജയ് ദുബൈ പറഞ്ഞു

പോർട്ട് ബ്ലെയറിലെ കാലാവസ്ഥാ നിരീക്ഷണ ഓഫീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇത് പടിഞ്ഞാറേക്ക് നീങ്ങി

ഇതിനു മുന്നോടിയായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കനത്തമഴ പെയ്യുകയാണ്

ഭിന്നശേഷിക്കൂാരിൽ വിവര സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവുണ്ട്ട്ട്ക്കു്ന്നതിനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൂങ്ങൾക്കിന് വിവര സാങ്കേതികവിദ്യ എങ്ങനെ സഹായിക്കുന്നു എന്ന്തിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ആഗോള ഐ സി ടി ചലഞ്ച്